ലേറെ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചെന്ന് റെയിൽവേ മന്ത്രാലയം

ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ പി

സിന്ധു ഇന്ന് നസോമി ഒക്കു ഹാരയെ നേരിടും

ജെ

പ്രഗത്ഭനായ അഭിഭാഷകനും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സജീവ സാന്നിദ്ധ്യവുമായിരുന്ന ജെയ്റ്റ്ലി ദീർഘനാളിി്യുള്ള അസുഖത്തെ തുടർന്ന് ഇന്നലെയാണ് ഡൽഹി എയിംസിൽ നിര്യാത്യത്

ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് പ്പൊതുദർശനത്തിന് വയ്ക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപത്രി എം വെങ്കയ്യനായിഡു ലോക്സഭാ സ്പീക്കർ ഓം ബിർല ബി ജെ

അധ്യക്ഷൻ അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ഇന്നലെ തെക്കൻ ഡൽഹിയിലെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു ഇന്നലെ ബഹ്റിനിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രിയ സഹപ്രവർത്തകനെ അനുസ്മരിച്ചു വിലയേറിയ സുഹൃത്തിനെയാണ് തനിക്ക് നഷ്ടമായതെന്ന് അദ്ദേഹം പറഞ്ഞു ജയ്റ്റ്ലിയുടെ ഭാര്യയെയും മകനെയും ടെലഫോണിൽ ബന്ധപ്പെട്ട് അദ്ദേഹം അനുശോചനം അറിയിച്ചു ജയ്റ്റ്ലിയുടെ നിര്യാണത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ സന്ദർശനം പകുതി വച്ച് നിർത്തി പ്രധാനമന്ത്രി നാട്ടിലേക്ക് വരേതില്ലെന്ന് അവർ അഭ്യർത്ഥിച്ചു

ഇ സന്ദർശനം പൂർത്തിയാക്കി ബഹ്റിനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്

ഇന്ത്യയും ബഹ്റിനും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനും വ്യാവസായിക സാംസ്കാരിക വിനിമയം ശക്തമാക്കാനുമുള്ള നടപടികളും ചർച്ച ചെയ്തു ബഹ്റിൻ രാജകുമാരൻ ഖലീഫ ബിൻ സൽമാൻ അൽ ഖാലിഫയുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി സാംസ്കാരിക വിനിമയം ബഹിരാകാശ ഗവേഷണം സൌരോർജ്ജം റുപേ കാർഡ് തുടങ്ങിയ മേഖലകളിൽ ഇരുരാഷ്ട്രങ്ങളും കരാർ ഒപ്പു വച്ചു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായാണ് ബഹ്റിൻ സന്ദർശിക്കുന്നത്

ബഹ്റിൻ ദേശീയ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അ്ദ്ദേഹം അഭിസംബോധന ചെയ്തു ഗൃശ്ശ് മ്യേഖലയിലെ പുരാതനമായ ശ്രീനാഥ് ജി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാര്ങ് പ്രവർത്തനങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സാക്ഷ്യം വഹിക്കും

എ ഇ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ഇന്നലെ ബഹ്റിനിലെത്തിയത്

അനിഷ്ട സംഭവങ്ങൾ ഒരിടത്തുനിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല

അതേസമയം അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം നിലനിൽക്കുന്നതായും ഏത് തരം പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ സുരക്ഷാസേന സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി

കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഒൻപത് പ്രതി പക്ഷ നേതാക്കളെയാണ് ജമ്മുകശ്മീർ അധികൃതർ തടഞ്ഞത് വിമാന ത്താവളത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അനുമതി നിഷേധിച്ചതോടെ ഇവർ ഡൽഹിയിലേക്ക് മടങ്ങി രാഷ്ട്രീയ നേതാക്കൾ കശ്മീർ താഴ്വര സന്ദർശിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം ഗവർണർ സത്യപാൽ മാലിക്ക് പ്രസ്താവനയിറക്കിയിരുന്നു പ്രദേശത്തെ സമാധാനം പുനസ്ഥാപിക്കാ നുള്ള നടപടികളെ ഇത് ബാധിക്കും എന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി

രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള മൻ കി ബാത്തിന്റെ മൂന്നാം പതിപ്പാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളിലും ആകാശവാണിയുടെ വെബ്സൈറ്റിലും പരിപാടി ലഭിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ വിതരണ മന്ത്രാലയം ആകാശവാണി യുടെയും ദൂരദർശന്റെയും വാർത്താ വിതരണ വിഭാഗം എന്നിവയുടെ യൂടൂബ് ചാനലുകളിലും തത്സമയം പരിപാടി ലഭ്യമാകും ഹിന്ദിയിലുള്ള പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആകാശവാണി വിവിധ പ്രാദേശിക ഭാഷകളിൽ പരിപാടി പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടു മണിക്ക് പ്രാദേശിക ഭാഷകളിൽ പുനപ്രക്ഷേപണവും ഉണ്ടാകും

ഇന്ത്യൻ റെയിൽവേയുടെ ബയോ ടോയിലറ്റ് പദ്ധതി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ന്യൂതന സാങ്കേതിക വിദ്യ യാണ് ലോകത്ത് ആദ്യമായാണ് ഇത്തരമൊരു സാങ്കേതിക വിദ്യ റെയിൽ റോഡുകളിൽ ഉപയോഗിക്കുന്നത്

പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പാനൽ തയ്യാറാക്കാമെന്ന ഗവൺമെന്റിന്റെ ഉറപ്പിനെ തുടർന്നാണിത്

ക്യാമ്പുകളിൽ എത്താത്ത ദുരിതബാധിതരുടെ സർവ്വേ ഈ മാസം തന്നെ പൂർത്തിയാക്കും

ഡബ്ല്യൂ എഫ് ലോക ചാമ്പൃൻഷിപ്പിൽ ഇന്ത്യയുടെ പി

ഇത് മൂന്നാം തവണയാണ് സിന്ധു ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ പ്രവേശി ക്കുന്നത്

ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയാണ് സിന്ധുവിന്റെ എതിരാളി

സിക്ക് കരുത്തരായ മോഹൻ ബഗാനെ ഒന്നിനെതിരെ ര് ഗോളുകൾക്ക് ഗോകുലം ഫൈനലിൽ പരാജയപ്പെടുത്തി

കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നട്ടത്തീയി തിരച്ചതലിൽ ആരേയും കത്തൊൻ കഴിഞ്ഞില്ല ദേശീയി ദുരന്ത നിവാരണ സേന പൊലീസ് ഫയർഫോഴ്സ് സന്നദ്ധസ്ംഘടനകൾ നാട്ടുകാർ എന്നിവരൊക്കെ മനുഷ്യസാധ്യമായ എല്ലാ രീതിയിലും തെരച്ചിൽ നടത്തുകയാണ് ഉരുൾപൊട്ടലുായ സ്ഥലത്തും പരിസരങ്ങളിലും ഇതിനകം തന്നെ ര് തവണകളായി മണ്ണ് നീക്കി തെരച്ചിൽ നടത്തി

തെരച്ചിൽ തുടരേണ്ടതില്ലെന്ന് ഇനിയും കണ്ടെത്താനുള്ള അഞ്ചുപേരിൽ നാലുപേരുടെ ബന്ധുക്കളും അറിയിച്ചു തുടർന്ന് ശനിയാഴ്ച ദുരന്ത നിവാരണ സേന മടങ്ങി

ഞായറാഴ്ച ഇടുക്കി മല പ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു